വൈദ്യൂതി വാഹനങ്ങൾക്ക് ചാർജിങ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ക്ഷണിച്ചു

ലോകത്തെ സാമ്പത്തിക മാന്ദൃം പ്രതീക്ഷച്ചത്ര തീപ്രമാവില്ലെന്ന് ഐഎംഫ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് വ്യാപനം

കൃഷി പോഷണം എന്നീ മേഖലകളിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന മുൻഗണനയും പട്ടിണി ന്യൂന പോഷണം പോഷകാഹാരക്കുറവ് ക്ട്രൂന്നിവ പൂർണമായും നിർമ്മാർജനം ചെയ്യുന്നതിന്റുള്ളൂർ ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയും ഈ പരിപാട്ടിയിലൂടെ പ്രതിഫലിക്കുന്നു

സാമ്പത്തികപരമായും പോഷണ പരമായും പിന്നാക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിന് ഭക്ഷ്യ കാർഷിക സംഘടന നടത്തുന്ന ശ്രമങ്ങൾ സമാനതകളില്ലാത്തതാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുമായി ഇന്ത്യയ്ക്ക് ചരിത്രപരമായ ബന്ധമാണുള്ളത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

കേരളം ഉൾപ്പെടെ ആറ് സ്റ്റിസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ പഠനനിലവാരം മെച്ച്പ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി

പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദയവും നാഴികക്കല്ലുമാകും പദ്ധതിയെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു

സോജിലാ ചുരത്തിന് താഴെയായി നിർമ്മിക്കുന്ന തുരങ്ക പാത ശ്രീനഗർ ലേ എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പി ക്കുന്നത്

വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ധന സ്ഥാപനങ്ങൾ മറ്റ് സ്വകാര്യവും അല്ലാത്തതുമായ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നാണ് ഖനവ്യവസായ വകുപ്പ് അപ്പേക്ഷകൾ ക്ഷണിച്ചത്

റോഹ്താസിലും ഔറംഗാബാദിലും നാളെ നടക്കുന്ന റാലികളിൽ ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ വരും ആഴ്ചക ളിൽ വിവിധ റാലികളിൽ പങ്കെടുക്കും

നേതാക്കളായ തേജസ്വി യാദവ് തേജ്പ്രതാപ് ആർ എൽ എസ് പി നേതാവ് ഉപേന്ദ്ര ഖുശ്വാഹ തുടങ്ങിയവരാണ് മഹാസഖ്യത്തിന്റെ മുഖ്യ പ്രചാരകർ

വികസിതമല്ലാത്ത രാജ്യങ്ങൾക്കും വാക്സിൻ ലഭ്യതയിൽ തുല്യത കൈവരിക്കാൻ ഇത് ഉപകരിക്കു മെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് പറഞ്ഞു